ത യു ഡി എഫ് പ്രകടന പത്രിക ഇന്ന് രാവിലെ പുറത്തിറക്കും

എ കുര്യൻ അന്തരിച്ചു

വാർത്തകൾ വിശദമായി സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ലഭിച്ച നാമനിർദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്

സംസ്ഥാനത്തെ ഏക ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയും മലപ്പുറം ജില്ലയിൽ പത്രിക നൽകി

നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ എട്ടു പേരാണ് പത്രിക നൽകിയത് തിങ്കളാഴ്ച വരെ പത്രിക പിൻവലിക്കാം ദേദ വോട്ടർമാർക്ക് ഒന്നിലേറെ തിരിച്ചറിയൽ കാർഡ് നൽകിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ പരാതിയിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഇന്ന് റിപ്പോർട്ട് നൽകും

പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പ്രമുഖ മുന്നണി നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും ജനങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നും ലഭിച്ച നിർദേശങ്ങൾ ക്രോഡീകരിച്ചാണ് പ്രകടന പത്രിക തയ്യാറാക്കിയത് എൽ ഡി എഫ് പ്രകടന പത്രിക ഇന്നലെ തിരുവനന്തപുരത്ത് പുറത്തിറക്കിയിരുന്നു ദേദ മലപ്പുറം ലോക്സഭാ മണ്ഡലം എൻ ഡി എ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടനും ഗായകനുമായ മനോജ് തിവാരി എം പി ഉദ്ഘാടനം ചെയ്തു കശ്മീരിനു മേൽ ഉയർത്തിയ എല്ലാ അവകാശ വാദങ്ങളും ഉപേക്ഷിക്കുന്നുവെന്ന പാക് സൈനിക മേധാവിയുടെ പ്രസ്താവന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നിലപാട് ശരിവെയ്ക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു ഭാഷ മാറുമ്പോഴും രാജ്യമെന്ന് ഒറ്റവിചാരമാണ് ജനങ്ങളിൽ ഉണ്ടാകേണ്ടത് മതത്തിന്റേതുൾപ്പെടെ ഒരു വിവേചനവും ജനങ്ങൾ ക്കിടയിലില്ലെന്ന സന്ദേശം എല്ലാ വീടുകളിലും എത്തിക്കണമെന്ന് മനോജ് തിവാരി ആവശ്യപ്പെട്ടു ദേദ അമ്പലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്ന് ആലപ്പുഴ ജില്ലയിൽ പ്രതിഷേധദിനം ആചരിക്കുമെന്ന് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ വാസുദേവൻ അറിയിച്ചു തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ മുല്ലക്കലിൽ ഇന്നലെ വൈകീട്ട് ഏഴരയോടെയായിരുന്നു ആക്രമണം ദേദ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മലയോര ജില്ലയായ ഇടുക്കിയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി

അടിസ്ഥാന മേഖലാ വികസനത്തിന് ഇന്ത്യ സ്വീകരിച്ച ശക്തമായ മൂന്ന് നടപടികൾ പ്രകൃതി ദുരന്ത മേഖലകളുടെ പുനസ്ഥാപന നിർമ്മാണ വെർച്ചൽ യോഗത്തിൽ നിർമ്മലാ സീതാരാമൻ വിശദീകരിച്ചു ദേദ ആഗോള തലത്തിൽ വികസിക്കുന്ന ആയുർവേദം നാളെയുടെ ആരോഗ്യ സംരക്ഷണ സംഹിതയായി മാറുമെന്ന് കേന്ദ്ര ആയുഷ് സഹമന്ത്രി ശ്രീപദ് നായ്ക്ക് പറഞ്ഞു ഉന്നത നിലവാരത്തോടെ ആയുർവേദ വിദ്യാഭ്യാസം രാജ്യത്ത് ഉറപ്പാക്കുമെന്നും ആയുർവേദത്തിന്റെ തത്വശാസ്ത്രവും ചികിത്സ രീതികളും ഭാവി തലമുറക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി നാലാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയിരുന്നു ശ്രീപദ് നായിക് എട്ടു ദിവസത്തെ ആയുർവേദ ഫെസ്റ്റിവൽ ഇന്ത്യക്കകത്തും പുറത്തും ചർച്ച ചെയ്യപ്പെട്ടെന്നും ഇതിലൂടെ രൂപപ്പെട്ട ആശയങ്ങൾ സ്വീകരിക്കുകയും ആവശ്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് ഫെസ്റ്റിവൽ ചെയർമാൻ കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു

ഓൾ ഇന്ത്യ പ്ലാന്റേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറിയായിരുന്ന അദ്ദേഹം പീരുമേട് നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് മൂന്ന് തവണ എം എൽ എയും ആയിട്ടുണ്ട് ദ്ദേ ഇന്ത്യ ഇംഗ്ലണ്ട് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മൽസരം ഇന്ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വൈകീട്ട് ഏഴിനാണ് മൽസരം ഇരു ടീമുകളും രണ്ട് വീതം മൽസരങ്ങൾ ജയിച്ച് സമനിലയിലാണ് ദേദ ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം പി വി സിന്ധു സെമിയിൽ കടന്നു ജപ്പാൻ താരം അകാനെ യെമാഗുച്ചിയെ തോൽപ്പിച്ചാണ് സിന്ധു സെമി ബെർത്ത് നേടിയത്

ദേദ രാജ്യത്ത് ഇതുവരെ കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം നാല് കോടി പിന്നിട്ടു

ദേദ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളാ കർണാടക അതിർത്തിയിൽ കർണാടക ഗവ പരിശോധന കർശനമാക്കി

ഇന്നലെ തലപ്പാടിയിലെത്തിയ നിരവധി പേരെ പരിശോധനാഫലം ഇല്ലാത്തതിനെ തുടർന്ന് തടഞ്ഞിരുന്നു പിന്നീട് ഒരു ദിവസത്തേക്ക് ഇളവ് നൽകി ഇവരെ കടത്തി വിട്ടു

ദ്ദേ കൊച്ചി ഉൾപ്പെടെ രാജ്യത്തെ നിരവധി സ്ഥലങ്ങളിലെ കേന്ദ്ര ഗവൺമെന്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും സി ബി ഐ സംയുക്ത മിന്നൽ പരിശോധന നടത്തി സേവനങ്ങൾ നൽകുന്നതിലോ ഗവൺമെന്റ് പദ്ധതികൾ നടപ്പാക്കുന്നതിലോ വീഴ്ച വരുത്തുന്നുണ്ടോയെന്ന് കണ്ടെത്താനാണ് സി ബി ഐ മിന്നൽ പരിശോധന സംഘടിപ്പിച്ചത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബി എസ് എൻ എൽ റെയിൽവേ ജി എസ് ടി പോസ്റ്റൽ വകുപ്പ് എന്നിവയിലായിരുന്നു സി ബി ഐ പരിശോധന

രാവിലെ ഫിസിക്സ് കെമിസ്ട്രി പേപ്പറുകളും ഉച്ചയ്ക്ക് ഗണിതവുമായി ഒറ്റ ദിവസം കൊണ്ട് പരീക്ഷ പൂർത്തിയാക്കും അടുത്ത വർഷം മുതൽ പ്രവേശന പരീക്ഷ ഓൺലൈനാക്കാനും നിർദേശമുണ്ട് ദേദ വന്യജീവി ആക്രമണങ്ങൾക്ക് വനം വകുപ്പ് നൽകുന്ന നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് ഇനി മുതൽ അപേക്ഷകൾ ഓൺലൈനിൽ സമർപ്പിക്കാം ഇ ഡിസ്ട്രിക്ട് സൈറ്റിലും വനം വകുപ്പ് ഔദ്യോഗിക വെബ് സൈറ്റിലും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും അപേക്ഷ നൽകാവുന്നതാണ് ദേദ നാളെ അന്താരാഷ്ട്ര വന ദിനാചരണം ദിനാചരണത്തിന്റെ സംസ്ഥാനതല ചടങ്ങ് തിരുവനന്തപുരം വനശ്രീ ഓഡിറ്റോറിയത്തിൽ മുഖ്യ വനം മേധാവി പി കെ കേശവൻ ഉദ്ഘാടനം ചെയ്യും വന പുനസ്ഥാപനം വീണ്ടെടുക്കലിന്റെയും ക്ഷേമത്തിന്റെയും മാർഗം എന്ന വിഷയത്തെ അധികരിച്ചാണ് ഈ വർഷത്തെ ദിനാചരണം

എക്സൈസ് പരിശോധനയിൽ പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾക്ക് വൻ വിലമതിക്കുമെന്ന് അധികൃതർ അറിയിച്ചു